വ്യാപനം തടയാനും മരണസംഖ്യ ഗണ്യമായി കുറയ്ക്കാനും സാധിച്ചതായി കേന്ദ്ര സർക്കാർ

ആഭ്യന്തര വിമാന സർവ്വീസ് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും

രണ്ടാമത്

ഇസ്ലാംമത വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു

രോഗം നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾക്കും ചികിത്സാ സൌക്കുപ്പുങ്ങൾ ഒരുക്കുന്നതിനും ലോക് ഡൌൺ കാലയളവിൽ ആവശ്യമായ് സമയം ലഭിച്ചു

ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഒരു കോടി ് പേർക്ക് ചികിത്സ നൽകാൻ സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി

നിലവിലെ സാഹചര്യത്തിൽ ബംഗാളിലേക്ക് ശ്രമിക് ട്രെയിനുകൾ അയ്ക്കരുതെന്ന് മൂഖ്യമന്ത്രി മമത ബാനർജി റെയിൽവെയോട് ആവശ്യപ്പെട്ടു

ഇതിനിടെ ഉംപുൻ ചുഴിലക്കാറ്റിന്റെ ശക്തി ക്ഷയിച്ച് സഞ്ചാരപഥം ബംഗ്ലാദേശിലേയ്ക്ക് മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി

ഇന്നലെ ബംഗാളും ഒഡീഷയും സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപനം നടത്തിയത്

സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പൂർണ പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നതായും പ്പ്രൂക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയധികം പേർക്ക് ഒരു ദിവസം ഒരുമിച്ച് രോഗം സ്ഥിരീകരിക്കുന്നത്

ഇന്ന് മൂന്ന് പേർ രോഗ മുക്തി നേടി

പിമാരുടെയും എം

എ മാരുടെയും സംയുക്ത യോഗം വിളിച്ചു

ലോക്ഡൌണിനെ തുടർന്ന് മാറ്റിവച്ച എസ് എസ് എൽ സി ഹയർ സെക്കൻററി വി എച്ച്

പരീക്ഷകൾ ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്

സി എസ്

വിദ്യാർത്ഥികൾ മാസ്കുകൾ ധരിക്കാനും സാനിറ്റൈസറുകൾ കരുതാനും നിർദേശിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്ര മോഹൻ

ആകെ രോഗബാധിതരിൽ മൂന്നിലൊന്നും മഹാരാഷ്ട്രയിലാണ്

പ്രതിദിനം ഒരു ലക്ഷത്തിലധികം പരിശോധനകളാണ് ഇപ്പോൾ നടത്തുന്നത്

സമയദൈർഘൃത്തിന്റെ അടിസ്ഥാനത്തിൽ ഏഴു വിഭാഗമാക്കിയായിരിക്കും വിമാനക്കൂലി ഈടാക്കുകയെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി

വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് ഏഴ് വിമാനങ്ങളാണ് പ്രവാസികളെ തിരികെ എത്തിക്കാനായി സർവ്വീസ് നടത്തുന്നത് ദൌതൃത്തിന്റെ ഭാഗമായി യു എ ഇ യിൽ നിന്ന് നാലും ഒമാനിൽ നിന്ന് മൂന്നും വിമാനങ്ങൾ ഇന്ന് ഇന്ത്യയിലെത്തും ആയിരത്തോളം ഇന്ത്യക്കാർ നാട്ടിലെത്തും

ദുബായിൽ നിന്ന് തിരുവനുന്ത്പുരത്തേയ്ക്കുള്ള വിമാനം അൽപ്പസമയത്തിനകം എത്തുമെന്നാണ് റ്റ്വിവരം

മസ്ക്കറ്റിൽ നിന്ന് ബോധ്ഗയയിലേയ്ക്കും ഒരു് വിമാനം സർവ്വീസ് നടത്തുന്നുണ്ട്

നാളെ മുതൽ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താം

ചെറ്റീയ് പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് നാളത്തെ സമ്പൂർണ ലോക്ഡൌണിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ലഫ്റ്റനന്റ് ജനറൽമാരായ വൈ

ജോഷ് ഹരീന്ദർ സിംഗ് എന്നിവരുമായി അദ്ദേഹം സേനാവിന്യാസം സംബന്ധിച്ച് ചർച്ച നടത്തി